വികസനം കൊണ്ടു വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലും അസമിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

പ്രതിരോധ സെക്രട്ടറിയും രാജ്യരക്ഷാ മൂന്ത്രിയും കൂടിക്കാഴ്ച നടത്തി

നാമനിർദ്ദേശ പത്രിക്കുകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി

രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗൃമന്ത്രാലയം

മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ളണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിനയച്ചു

റൂർക്കേല സ്റ്റീൽ പ്താന്റിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച കൊണാർക്കിലെ ഇന്ത്യൻ ഓയിൽ ഫൌണ്ടേഷൻ ട്രസ്റ്റ് സന്ദർശിച്ച ശേഷം രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും

ഇന്ന് ന്യൂഡൽഹിയിൽ റ്റ്ടെന്ന് കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം നയതന്ത്ര മേഖലയിലെ ് സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ വോയ്സ് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ സമൃദ്ധി ക്രമസമാധാനപാലനം തുടങ്ങിയവ സംബന്ധിച്ച് ഇന്ത്യ മുന്നോട്ടു വച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി സ്വാഗതം ചെയ്തതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിരോധ മേഖലകളിലെ സഹകരണം സൈനിക വിന്യാസ പിന്തുണ വർധിപ്പിക്കുക തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു സമഗ്രമായ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ഒരുമിച്ച് പ്രവർത്തിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു ഇരു രാഷ്ട്രവും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം ഏകീകരിക്കാനും കൂടുതൽ വിപുലീകരിക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് മാറി വരുന്ന ആഗോള സാഹചരൃത്തിൽ വിവിധമേഖലകളിൽ ഒരുമിച്ചു പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും ഇന്ത്യ അറിയിച്ചു ഇന്ത്യയെ അമേരിക്കയുടെ പ്രധാന പങ്കാളിയായാണ് കരുതുന്നതെന്ന് യു

ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്താൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഓസ്റ്റിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു

അസമിലെ ചബുവായിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അസമിന്റെ എല്ലാ മേഖലകളിലുമുള്ള വികസനമാണ് ബിജെപി സർക്കാരിന്റെ ലക്ഷ്യം സംസ്ഥാനത്തിന്റെ പാരമ്പരൃവും സംസ്ക്കാരവും സംരക്ഷിക്കപ്പെടുമെന്ന് ബിജെപി ഉറപ്പ് നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

അഴിമതിയും അക്രമവും തുടച്ച് നീക്കി ബംഗാളിൽ വികസനം കൊണ്ടു വരുമെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമബംഗാളിലെ ഖരഗ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇതുവരെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭരണം വഴി നാടിന്റെ വികസനം മുരടിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ജെ

കിഴക്കൻ മേദിനിപൂരിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സർക്കാർ സ്ഥാപനങ്ങളെ കൃസ്പുകാര്യവത്കരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ആര്യേപിച്ച് മമത സംസ്ഥാനത്ത് സമാധാനവും വികസനവും ഉറപ്പാക്കു്മെന്നും പറഞ്ഞു

ഡി എഫ് കഴിഞ്ഞ ദിവസവും യു ഡി

ജെ

തിങ്കളാഴ്ചയോടെ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും

ജെ

മഹിള ടൌൺഹാൾ എന്ന പേരിൽ ഭാരതീയ ജനതാ മഹിളാമോർച്ച കൊല്ലത്ത സംഘടിപ്പിച്ച സംവാദപരിപാടി അവർ ഉദ്ഘാടനം ചെയ്തു

കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ

രോഗത്തെ ഒരു സാമൂഹ്യ പ്രശ്നമായി കണ്ട് മുഴുവർ ക്ഷനങ്ങളും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും ആദ്ദേഹം ആഹ്വാനം ചെയ്തു

വിവിധ തലങ്ങളിലുള്ള സംയോജിത ശ്രമങ്ങളിലൂടെ മാത്രമേ ക്ഷരോഗം പോലുള്ള വ്യാധികളെ തുരത്താൻ സാധിക്കുകയുള്ളൂവെന്നും കേന്ദ്രമന്ത്രി വൃക്തമാക്കി

പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനാണ് വില നിയന്ത്രണം കൊണ്ടു വന്നത് ഇൻസൂലിൻ മരുന്നുകളുടെ വിലയിലും നിയന്ത്രണം കൊണ്ട് വന്നിട്ടുണ്ട്

പുതുക്കിയ വില അടുത്ത മാസം മുതൽ പ്രാബലൃത്തിൽ വരും

ഒരു റിപ്പോർട്ട് വോയ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്സ്ന്ദർശനത്തോടനുബന്ധിച്ചാണ് ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്ന ഖാദി ്കൂ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്

ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ രഹ്മാന്റെ നൂറാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ രാഷ്ട്രനേതാക്കൾക്കും ധരിക്കുന്നതിനായി ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നൂറ് മുജീബ് ജാക്കറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്

ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഖാദി ഗ്രാമ വൃവസായ കമ്മീഷൻ ഉൽപാദിപ്പിച്ച ഉന്നതനിലവാരത്തിലുള്ള പേപ്പർ ബാഗുകളിലാണ് ജാക്കറ്റുകൾ സമ്മാനിക്കുക

ടോസ് നേടിയ ഇംഗ്ളണ്ട് ഇന്തൃയെ ബാറ്റിംഗിനയച്ചു